ന്യൂഡൽഹിയിൽ തുടക്കമാകും

പ്രായപൂർത്തിയായ എല്ലാ പ്രൃക്തികളെയും ഉൾപ്പെടുത്താൻ ക്യൂന്ദ്മിന്ത്രിസഭ തീരുമാനിച്ചു

ഏഴ് പുതിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ന് സ്ഥിരം കൃാമ്പസുകൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ അനുമതി

കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും ആരോഗൃമന്ത്രി കെ

വിജയത്തുടക്കം

ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കിൾ പോംപിയോയും പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസും ന്യൂഡൽഹിയിൽ എിത്തിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജും പ്രതിരോധ് മന്ത്രി നിർമലാ സീതാരാമനുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വാണിജ്യ വ്യവസായ ബന്ധം ശക്തിപ്പെടുത്തുക ഭീകരതയ്ക്കെതിരെയുള്ള യോജിച്ചു നീക്കം എന്നിവയാണ് പ്രധാന അജണ്ട

പോംപിയോയും മാറ്റിസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സന്ദർശിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്തോ പെസഫിക് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ചർച്ചാവിഷയമാകും

ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷിതവും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിലേയ്ക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സന്ദർശനവേളയിൽ ുദ്ദേശ്വീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലുമായുരിക്കൂടിക്കാഴ്ച നടത്തും മേഖല ആഗോള സുരക്ഷയ്ക്കായി ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയ്മാണ് ഭീകരതയ്ക്കെതിരെയും പ്രതിരോധ ഗവേഷണ മേഖ്ലയിലും ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുമെന്നും ജിം മാറ്റിസ് പറഞ്ഞു

രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിൽ പെടാതെ ഇപ്പോഴും പുറത്ത് കഴിയുന്നവരെ ഉദ്ദേശിച്ചാണ് തീരുമാനമെന്ന്

പദ്ധതി പ്രകാരമുള്ള ഓവർഗ്രാഫ്റ്റ് അയ്യായിരത്തിൽ നിന്ന് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതായും ശ്രീ

റൂപയ് കാർഡ് ഉടമകളുടെ അപകട ഇൻഷവറൻസ് പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമായും ഉയർത്തി

ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക പൃദ്ധതിയാണ് ജൻധൻയോജന എന്നും ധനമന്ത്രി ആവ്കാൾപ്പെട്ടു

എ

ഈക്കാര്യത്തിൽ കോൺഗ്രസ്സ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം ശ്രീ അരുൺ ജയ്റ്റലി പറഞ്ഞു

ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ കരാർ സംബന്ധിച്ച വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വിശദീകരിച്ചു ഈകാര്യത്തിൽ കോൺഗ്രസ്സ് ദുരുപദിഷ്ടമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റലി പറഞ്ഞു

എ ഗവൺമെന്റ് നിശ്ചയിച്ചതിനേക്കാൾ ഒമ്പത് ശതമാനം വിലക്കുറവിലാണ് വാങ്ങുന്നതെന്നും ഇടപാടിൽ സ്വകാര്യ കക്ഷികൾക്കൊന്നും പങ്കാളിത്തം ഇല്ലെന്നും ജയ്റ്റലി വ്യക്തമാക്കി അമൃത്സർ ബോഡ്ഗയ നാഗ്പൂർ സാംബർപൂർ സിർമൌർ വിശാഖപട്ടണം ജമ്മു എന്നിവിടങ്ങളിൽ ഐ ഐ

പ്രിന്യജീവി ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിരിുള്ള് പദ്ധതികൾ തുടരാൻ സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള ്മന്ത്രിസഭാ സമിതി അനുമതി നൽകി

ഒരിടത്തും എലിപ്പനി കൂടുന്നതായി ഇപ്പോൾ റിപ്പോർട്ടു ചെയ്യുന്നില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്നലെ എലിപ്പനി ബാധിച്ച ഒരാളും സംശയാസ്പദമായി ഒരാളുമാണ് മരണമടഞ്ഞത്

കനത്ത വെള്ളപ്പൊക്കം ഉണ്ടായസമയത്തും മരണനിരക്ക് കുറച്ചു നിർത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പ് സജീവമായി ഇടപെട്ടതുകൊണ്ടാണ് പകർച്ചവ്യാധികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് പകർച്ചാവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മൂന്നാഴ്ച തുടരുമെന്നും മന്ത്രി അറിയിച്ചു

ഞായറാഴ്ച രണ്ടാം മത്സരത്തിൽ ഇന്ത്യ മാലെദ്വീപിനെ നേരിടും

എസ് ഓപ്പണിൽ പുരുഷൻമാരുടെ സിംഗിൾസിൽ സ്പെയിന്റെ റഫേൽ നദാലും വനിതാ സിംഗിൾസിൽ സെറീനാ വില്യംസും സെമിയിൽ പ്രവേശിച്ചു കാർട്ടറിൽ ഡൊമിനിക് തീമിനെ അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് നദാൽ തോൽപിച്ചത്

ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിനാ പ്ലിസ്കോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് സെറീന വില്യംസ് സെമിയിൽ എത്തിയത്

സെമിയിൽ സെറീനാ ലാത്വിയൻ താരം അനസ്താസിയ സെവസ്റ്റോവയെ നേരിടും

ഇ പ്രതിരോധമന്ത്രി മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബൊവാർഡിയുമായി ഇന്ത്യൻ അംബാസ്യിഡർ നവദീപ് സൂരി ചർച്ച നടത്തി പ്രതിരോധ രംഗത്തെ ഇരു രാജ്യങ്ങളുടെയും സഹകരണം വർധിപ്പിക്കുന്നത് ലൂക്ഷ്യമിട്ടായിരുന്നു ചർച്ചു പ്രതിരോധ മേഖലയിലും ഇന്ത്യി ്യുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ആശാവ്ഹമാണെന്ന് യു

ഇ മന്ത്രി പറഞ്ഞു അബുദാബിയിൽ നടന്നിച്ചർച്ചയിൽ യു എ ഇ പ്രതിരോധ അണ്ടർ സെക്രട്ടറി മറ്റാർ സലിം അലി അൽ ദാഹേരിയും സംബന്ധിച്ചു

ബിദ്യുത് ചക്രവർത്തി രചിച്ച കോൺസ്റ്റിറ്റ്യൂഷനലൈസിങ് ഇന്ത്യ ആൻ ഐഡിഷണൽ പ്രോജക്ട് എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ഭരണഘടനയാണ് ഒരു രാജ്യത്തിന്റെ ഭരണ്ണസംവിധാന അധികാര വൃവസ്ഥിതിയെ നിയന്ത്രിക്കുന്ന ഘടക്ക്ക്മെന്ന് ശ്രീ നായിഡു പറഞ്ഞു

വടക്കൻ ഗുവാഹത്തിയിലേയ്ക്ക് പോകുകയായിരുന്ന ബോട്ട് സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർമാണത്തിലിരുന്ന തൂണിലിടിച്ചാണ് അപകടം ഉണ്ടായത്